ദേശീയ നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുശേഷം ബി ജെ പിക്ക് കേരളത്തിൽ ഒരു കൂട്ടം എം പിമാരുണ്ടാകുമെന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ജനങ്ങളുടെ ദൂരിതം മാറണമെങ്കിൽ കേന്ദ്രത്തിൽ ബദൽ നയങ്ങളുള്ള

തമിഴ്നാട്ടിലെ വെല്ലൂർ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീ ഷൻ റദ്ദാക്കി സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ സർവ്വീസസും ഗോവയും സെമി

കനത്ത വേനൽചൂടിലും ഊർജ്ജിതമായ പ്രചാരണമാണ് എല്ലായിടങ്ങളിലും നടക്കുന്നത് ആരോപണ പ്രത്യാരോ പണങ്ങളും വാഗ്ദാനങ്ങളും വോട്ടർമാരെ സ്വാധീനിക്കാനായി ഉപയോഗ പ്പെടുത്തുന്നുണ്ട്

പ്രചാരണത്തിന് ഊർജ്ജം പകരാൻ പാർട്ടികളുടെ ദേശീയ നേതാക്കൾ പ്രചാരണരംഗത്ത് സജീവമാണ് ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രി പിണറായി വിജ യനും ഇന്നലെ വിവിധ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തു ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സംസ്ഥാനത്തെത്തിയ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ഇന്ന് കണ്ണൂരിലും മലപ്പുറത്തും കോഴിക്കോട്ടും തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കും

സി പ്രസിഡന്റ് മുല്ലപ്പളളി രാമചന്ദ്രൻ എ ഐ

സി ജനറൽ സെ ക്രട്ടറിമാരായ മുകുൾ വാസ്നിക് കെ

ഡി എഫ് നേതൃയോഗത്തിൽ പങ്കെടുക്കും തുടർന്ന് അദ്ദേഹം വയനാട്ടിലെ തിരുനെല്ലിയിലേക്ക് പോകും

ഉച്ചയ്ക്ക് ഒരു മണിക്ക് കോഴിക്കോട് തിരുവമ്പാടി യിൽ യു ഡി എഫ് സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും

പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീണ്ടും കേരളത്തിലെത്തും തിരുവനന്തപുരത്ത് വൈകിട്ട് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പ്രചാരണ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും ് എൻ ഡി എ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്ത നങ്ങളുടെ ഭാഗമായി കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ ഇന്ന് നിലമ്പൂരിലും കോഴിക്കോട്ടും പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കും വൈകിട്ട് മൂന്നരയ്ക്ക് നിലമ്പൂർ ചെട്ടി യങ്ങാടിയിൽ പൊതുയോഗത്തിൽ അദ്ദേഹം സംസാരിക്കും ആറിന് കോഴി ക്കോട്ട് ശ്രീനാരായണ സെന്റിനറി ഹാളിൽ നടക്കുന്ന പരിപാടിയിലും പീയുഷ് ഗോയൽ പങ്കെടുക്കും

കണ്ണൂർ ബി ജെ പി ഓഫീസിൽ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തും തുടർന്ന് റോഡുമാർഗ്ഗം കോഴിക്കോട്ടേക്ക് പോകും ലോക്സഭാ തെരഞ്ഞെടുപ്പിനുശേഷം ബി ജെ പിക്ക് കേരളത്തിൽ നിന്നും ഒരുകൂട്ടം എംപിമാർ ഉണ്ടാകുമെന്ന് ബി ജെ പി ദേശീയ അധ്യ ക്ഷൻ അമിത്ഷാ പറഞ്ഞു എറണാകുളം ജില്ലയിലെ അത്താണിയിൽ എൻ ഡി എ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേ ഹം സംസ്ഥാനത്ത് ബി ജെ പി ശബരിമല ഭക്തർക്കൊപ്പം പാറപോലെ ഉറച്ചു നിൽക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു

കേരളത്തിന്റെ പിന്നാക്കാവ സ്ഥക്കു കാരണം മാറി മാറി വരുന്ന എൽ ഡി എഫ് യു ഡി എഫ് ഭരണ മാണെന്നും അമിത്ഷാ പറഞ്ഞു ഭൂീകരർക്കെതിരെയുള്ള കേന്ദ്രത്തിന്റെ നടപടികൾ ജനങ്ങൾ അംഗീകരിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി കോർപറേറ്റ് പ്രീണന കാര്യത്തിൽ ബി ജെ

ക്കും സി

ഐ എ മ്മിനും ഒരേ നയമാണെന്ന് കോൺഗ്രസ് നേതാവ് വി

കണ്ണൂർ നാറാത്ത് യു

പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങളിലെ എൽ ഡി എഫ് തെരെഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

കേരളത്തിന്റെ മഹിമ കണ്ടാണ് ഇവിടെ മത്സരിക്കുന്നതെന്നു പറയുന്ന രാഹുൽ ഗാന്ധി ഇടത്തുപക്ഷമാണ് തകർക്കപ്പെടേണ്ടത് എന്ന തെറ്റായ സന്ദേശമാണ് രാജ്യത്തിന് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മോദി ഗവൺമെന്റ് ഭരണഘടനയുടെ മൂല്യങ്ങൾ തകർക്കുകയാ ണെന്ന് സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദാ കാരാട്ട് പറഞ്ഞു

ഭരണഘടനയ്ക്കും ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും മൂല്യങ്ങൾക്കുമെതിരെയുള്ള കടന്നാക്രമണമാണ് കഴിഞ്ഞ അഞ്ചുവർഷമായി ഇന്ത്യ കണ്ടതെന്നും ബൃന്ദ കാരാട്ട് കുറ്റപ്പെടു ത്തി

ഡി എം കെ സ്ഥാനാർത്ഥിയുടെ ഓഫീ സിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ സാഹചര്യത്തിൽ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം റദ്ദാക്കണമെന്നാവശൃപ്പെട്ട് കമ്മീഷൻ രാഷ്ട്രപതിക്ക് നൽകിയ ശുപാർശ അംഗീകരിച്ചതിനെ തുടർന്നാണ് വോട്ടെടുപ്പ് റദ്ദാക്കിയത്

കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ നാളെ വൈ കിട്ട് ആറ് മണി വരെ കണ്ണൂർ ജില്ലയിലെ മാഹിയോട് ചേർന്നുകിടക്കുന്ന പ്രദേശങ്ങളിലും കണ്ണൂർ കലക്ടർ ഡ്രൈഡേ പ്രഖ്യാപിച്ചിട്ടുണ്ട് മാഹി നിയോജക മണ്ഡലാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന അഞ്ച് കിലോമീറ്റർ പ്രദേശങ്ങളിലെ മദ്യശാലകൾ ഹോട്ടലുകൾ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ മദ്യമോ മറ്റ് ലഹരി പദാർഥങ്ങളോ വിൽക്കാനോ വിതരണം ചെയ്യാനോ പാടില്ല

ഗോൾ ശരാശരിയിൽ സർവ്വീസസ് ഗ്രൂപ്പ് ജേതാ ക്കളായി

പഞ്ചാബിന് അഞ്ചാം ജയമാണിത് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരബാദിനെ നേരിടും

ആയഞ്ചേരി വില്ല്യാപ്പളളി വടകര ഏറാമല ഒഞ്ചിയം മൂടാടി ഒളവണ്ണ തുറയൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത്

മലമ്പുഴയിലാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത്

പത്തനംതിട്ട റാന്നിയിൽ പമ്പയിൽ കുളിക്കാനിറങ്ങിയ രണ്ടു യുവാക്കൾ മുങ്ങി മരിച്ചു

തലച്ചിറിസ്വദേശികളായ സുജിത്ത് നന്ദു എന്നിവരാണ് മരിച്ചത്

നിരവധി മരങ്ങൾ കടപുഴകി വീണതിനെത്തുടർന്ന് വൈദ്യുതി ബന്ധവും തകരാറിലായി

സുർക്ഷ സംബന്ധമായ ജോലികൾ സുഗ മമാക്കുന്നതിന്റെ ഭാഗമായാണ് ട്രെയിനുകൾ റദ്ദാക്കിയത്

പാലക്കാട് ജില്ലയിൽ പാട്ടകൃഷി ചെയ്യുന്ന മുഴുവൻ കർഷകരുടെയും നെല്ല് സംഭരിക്കുമെന്നു പാടി മാർക്കറ്റിങ് അധികൃതർ അറിയിച്ചു

മെമ്പർ സെക്രട്ടറിയായി എറണാകുളം ജില്ലാ ജഡ്ജി പി

അരവിന്ദ ബാബുവിനെയും ആർട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസല്യൂഷൻ സെന്റർ ഹൈക്കോടതി ഡയറക്ടറായി ജില്ലാ ജഡ്ജി ജോണി സെബാസ്റ്റ്യ നെയുമാണ് നിയമിച്ചത്